യുവാക്കളോട് ആഹ്വാനം ചെയ്ത് മൻകി ബാതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി

കേരളത്തിലെത്തും വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും

വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് തെരഞ്ഞെടുപ്പുകളിൽ സമ്മതിദാനാവകാശം വിനിയോഗിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു

ഭാരതത്തിന്റെ ബൃഹത്തായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലോകമെങ്ങുമുള്ള ആൾക്കാർക്ക് അത്ഭുതമാണെന്നും പ്പിയു ്തലമുറ ആവേശത്തോടെ ഈ ജനാതിപധ്യ പ്രക്രിയയിൽ പ്പങ്കാളികാളാകണമെന്നും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തു

രാജ്യത്തെ ബഹിരാകാശ പര്യവേഷണങ്ങളിൽ യുവാക്കളുടെ സംഭാവനയിൽ അഭിമാനിക്കുന്നുവെന്ന് ശ്രീ

രാജ്യത്തിന്റെ ഉപഗ്രഹങ്ങൾ വളരുന്ന ശക്തിയുടെ പ്രതീകമാണെന്ന് ശ്രീ

ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ ബഹിരാകാശ സാങ്കേതിക വിദൃ ഉപയോഗിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു

കഴിഞ്ഞ ഒരുമാസമായി നടന്നുവരുന്ന സ്വച്ച് സുന്ദര ശൌചാലയ മത്സരത്തിൽ അൻപതിനായിരത്തിലധികം ശൌചാലയങ്ങൾ പങ്കെടുത്തു

വാർഷിക പരീക്ഷ എഴുതുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു

നരേന്ദ്രമോദി മൻകി ബാതിന്റെ ഈ ലക്കം ഉപസംഹരിച്ചത്

പെട്രോ കെമിക്കൽ കോംപ്ലക്സിന്റെ നിർമ്മാണോദ്ഘാടനവും അദ്ദേഹം നിർവ്വഹിക്കും

ജി ബോട്ടിലിംഗ് പ്താന്റിന്റെ സ്റ്റോറേജ് ഫെസിലിറ്റി ഉദ്ഘാടനം ഏറ്റുമാനൂർ സ്കിൽ ഡെവലപ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിർമ്മാണ ഉദ്ഘാടനം എന്നിവയാണ് പ്രധാനമന്ത്രിയുടെ മറ്റ് പരിപാടികൾ പിന്നീട് തൃശ്ശൂരിൽ യുവമോർച്ചാ സമ്മേളനത്തിലും പങ്കെടുക്കും

രാവിലെ തമിഴ്നാട്ടിലെത്തിയ അദ്ദേഹം മധുരയിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിന്റെ നിർമ്മാണോദ്ഘാടനം നിർവ്വഹിച്ചു എയിംസിന്റെ നിർമ്മാണം ഏക ഭാരതം ശ്രേഷ്ഠഭാരതം പദ്ധതികളുടെ വിജയത്തിന്റെ തെളിവാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഡൽഹി എയിംസ് നിലവാരത്തിൽ മികച്ച ചികിത്സാ സൌകര്യങ്ങൾ ഒരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി തിരുച്ചിറപ്പള്ളി ആകാശവാണി വാർത്താവിഭാഗം മേധാവി കെ

ലോകസഭ നടപടികളുടെ സുഗമമായ നടത്തിപ്പിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് സർവ്വകക്ഷിയോഗം വിളിച്ചത്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് ബജറ്റ് സമ്മേളനത്തിന് തുടക്കമാകുക

ന്യൂഡൽഹിയിൽ വർദ്ധിച്ചുവരുന്ന അന്തരീക്ഷ മലിനീകരണവും ഗതാഗത തടസവും കുറയ്ക്കാൻ പദ്ധതി പ്രയോജനപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു ഡൽഹിയിൽ ഇന്നലെ ആറ് വരി പാതയുടെ ശിലാസ്ഥാപന ചടങ്ങ് നിർവ്വഹിക്കുകയായിരുന്നു അദ്ദേഹം

മദ്രാസ് ഐ ഐ

സൌരോർജ്ജ ഉത്പാദനവും അതിന്റെ ശേഖരണവും ജല മാനേജ്മെന്റ് സൌരോർജ്ജം ഉപയോഗിച്ചുള്ള കടൽ ജല ശുദ്ധീകരണം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ നൂതന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ ശാസ്ത്രലോകം ഗവേഷണങ്ങൾ നടത്തണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു

ഗാംഗ്രൂ അനോഖി ചിഷ്മ തുടങ്ങിയ മേഖലകളിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് വൻപാറകളും മറ്റും റോഡിലേക്ക് വീണതിനെ തുടർന്നാണ് ഇത് റമ്പാൻ ജില്ലയിലെ നിരവധി സ്ഥലങ്ങളിൽ കല്ലുകൾ പതിച്ചതായി അധികൃതർ അറിയിച്ചു റോഡിലെ ഗതാഗത തടസ്സം നീക്കുന്നതിനായി യന്ത്ര സഹായ്ത്തോടെയുള്ള പ്രവർത്തനം നടക്കുന്നതായും അധികൃതർ പിളഞ്ഞു്

വനിതാ വിഭാഗം സിംഗിൾസിൽ ജപ്പാന്റെ നവോമി ഒസാക്ക ജേതാവായി